ആർ ഒ ് ചെയർമാൻ ഡോ

രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദിന്റെ വിദേശ യാത്രയ്ക്ക് പാക്കിസ്ഥാൻ വ്യോമപാത അനുവദിക്കാ ത്തതിനെ ഇന്ത്യ വിമർശിച്ചു

ആദിവാസി കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി എ

എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം

ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ആധു നികതയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഒ ചെയർമാൻ ഡോ

ഓർബിറ്റർ ഏഴുവർഷം ചന്ദ്രനെ ഭ്രമണം ചെയ്യുമെന്നും അദ്ദേഹം ബംഗളുരുവിൽ പറഞ്ഞു ഒരു വർഷ മാണ് ഓർബിറ്ററിന്റെ ആയുസ്സെന്ന് നേരത്തെ പറഞ്ഞിരുന്നു

ഒ ചെയർമാൻ വൃക്തമാ ക്കി ചന്ദ്രനിലേക്ക് ലാൻഡറിന്റെ യാത്രയിൽ ആദ്യ മൂന്ന് ഘട്ട ങ്ങളും വിജയകരമായിരുന്നുവെന്നും അവസാന ഘട്ടത്തിലാണ് സിഗ്നൽ ബന്ധം നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു ഓർബിറ്റർ ക്യാമറ മികച്ച റെസല്യൂഷനുള്ളതാണ് ചന്ദ്രന്റെ ജലത്തിന്റെ തോത് ഉൾപ്പെടെ കാര്യങ്ങൾ ആഴത്തിൽ വിലയി രുത്താൻ ഇതിനാവുമെന്നും ഡോ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഐസ്ലാൻഡ് യാത്രയ്ക്ക് പാക്കിസ്ഥാൻ വ്യോമപാത അനുവദിക്കാത്തതിൽ ഇന്ത്യ വിമർശിച്ചു പാക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ നടപടിയിൽ ഇന്ത്യയ്ക്ക് ഖേദമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഐ പി വിമാനങ്ങൾക്ക് നിലവിൽ ഏത് രാജ്യവും വ്യോമപാത അനുവദിക്കാറുള്ളതാണെന്നും ഇത്തരം ഏകപ ക്ഷീയ നടപടികളുടെ വൃർഥത പാക്കിസ്ഥാൻ മനസ്സിലാക്കണ മെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഐസ്ലാൻഡ് സ്വിറ്റ്സർലാന്റ് സ്ലൊവേനിയ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെയാണ് രാഷ്ട്രപതി യാത്ര തിരിക്കുന്നത് പ്രളയ ദുരിതത്തെ നേരിടുന്നതിൽ കേരളം കാണിച്ച മാതൃക രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധ നേടിയതായും ഒരുമ യുടെ ഈ മാതൃക നമുക്ക് നിലനിർത്താൻ കഴിയണമെന്നും മുഖ്യ മന്ത്രി പിണ്റായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ആസൂത്രണ സമിതിയുടെയും ആഭി മുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രപളയ ദുരിതാശ്വാസത്തിൽ കൈകോർത്തവർക്ക് സ്നേഹാദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓഖി നിപ ദൂരന്തങ്ങളും ഇത്തരത്തിൽ നാം അതിജീവി ച്ചുവെന്നും ഈ വലിയ മാതൃക സൃഷ്ടിക്കാനായത് നമ്മുടെ സാംസ്കാരികത്തനിമ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി യൊരു ദുരന്തം വന്നാൽ തകർക്കാനാവാത്ത പുനർ നിർമ്മാണ ത്തിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മഹാപ്രളയകാലത്ത് പ്രായത്തിനപ്പുറം സേവനം ചെയ്ത സ്റ്റുഡന്റ് കേഡറ്റുകളുടെ സേവന സന്നദ്ധത നാട്ട് അങ്ങേയറ്റം വിലമതിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സഹജീവി സ്നേഹത്തിലും ആപത്തിൽപെട്ടവർക്ക് ആകാവുന്ന സഹായം ചെയ്തുകൊടുത്തും മാതൃക സൃഷ്ടിക്കാൻ കഴി ഞ്ഞതിന് കേഡറ്റുകൾക്ക് സംസ്ഥാനത്തിന്റെ ബിഗ് സല്യൂട്ട് അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി ്പറഞ്ഞു സ്റ്റുഡന്റ്സ് പൊലീസ് കേഡറ്റ്സ് പത്താം വാർഷികാഘോഷം തിരുവന ന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

സിയുടെ പത്ത് കൽപ്പനകൾ യൂണിസെഫിന്റെ കേര ളം തമിഴ്നാട് മേഖലാ മേധാവി ഡോ പിനാകി ചക്രവർത്തിക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു

പ്രളയരക്ഷാ പ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ അനുമോദിക്കാൻ കാഞ്ഞ ങ്ങാട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ ദുരിതാശ്ചാസ പ്രഖ്യാപനം നിർവ്വ ഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റ് ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാ പിച്ച പ്രദേശങ്ങളിലെ മുൻഗണന പൊതുവിഭാഗം സബ്സി ഡി പൊതുവിഭാഗം എന്നിവയിൽപ്പെട്ട റേഷൻ കാർഡുടമ കൾക്ക് ഈ മാസത്തെ റേഷൻ വിഹിതം സൌജന്യമായിരിക്കു മെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറി യിച്ചു ഇന്നും നാളെയും മറ്റന്നാളും റേഷൻ കുടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് തലത്തിലും മറ്റ് മേഖലയിലും ആദിവാസി കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എ

എഡ് ടി

സി പൂർത്തിയാ ക്കിയ കൂടുതൽ പേർക്ക് ഈ വർഷം തന്നെ തൊഴിൽ ലഭ്യമാ ക്കാനാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പട്ടികവർഗ്ഗക്കാർക്ക് ഓണക്കിറ്റ് ഓണക്കോടി വിതരണ ത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ നിർവ്വഹി ക്കുകയായിരുന്നു മന്ത്രി

കൊച്ചി യിൽ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാരുടെ അവലോ കന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാ യിരുന്നു മന്ത്രി ഏഴ് കോടി രൂപയാണ് അറ്റകുറ്റപ്പണികൾക്കായി അനുവദി ച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു അടുത്ത മാർച്ചിൽ കുണ്ടന്നൂർ വൈറ്റില ഫ്ളൈ ഓവറുകൾ പൂർത്തിയാവുമെന്നും സുധാക രൻ അറിയിച്ചു മന്ത്രി നേരത്തെ കുണ്ടന്നൂർ വൈറ്റില മേഖല കളിലെ തകർന്ന റോഡുകൾ സന്ദർശിച്ചു നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കി വരുന്ന പ്രവാസി പുന രധിവാസ പദ്ധതി പ്രകാരം പത്തുലക്ഷം രൂപ വരെ വായ്പ കൾ ഈടില്ലാതെ നൽകാൻ ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഇത് സംബന്ധിച്ച ധാരണാപത്രം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം

സാക്ഷരതയും ഭാഷാ ബഹുസ്വരതയും എന്നതാണ് ഈ വർഷത്തെ സാക്ഷരതാ ദിന പ്രമേയം

എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ബിയാൻക ആൻഡ്രസ്ക്യു സ്വന്തമാക്കി സെറീന വില്യംസിനെ നേരിട്ടുള്ള രണ്ട് സെറ്റുകൾക്ക് അട്ടിമറിച്ചാണ് കാനഡ താരം ബിയാൻക കിരീടം നേടിയത്

ഇതോടെ ലീഗ് റൌണ്ടിലെ അടുത്ത മത്സരങ്ങൾ നിർണ്ണായകമായി കേരളത്തിന്റെ രണ്ടാമത്തെ മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് നട ക്കും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കിന്റെ പത്ത് ശതമാനം ടൂറിസത്തിന്റെ സംഭാവനയാണെന്ന് മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ പറഞ്ഞു

മൂന്നാറിന്റെ ടൂറിസം സാധ്യത ലോക സഞ്ചാരികൾക്ക് പരി ചയപ്പെടുത്തുന്നതിന് സംഘടിപ്പിച്ച ട്രാവൽ മാർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സഞ്ചാരികൾക്ക് തുറ ന്നുകൊടുത്തു

ജില്ലാ ടൂറിസം വകുപ്പിന്റെ ഉദ്യാന നവീകരണം മുതിരപ്പുഴയാർ സൌന്ദര്യവൽക്കരണം പദ്ധതിക ളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവ്വഹിച്ചു

ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഗഡുക്കൾ കിട്ടു ന്നതുവരെ കാത്തുനിൽക്കാൻ കഴിയാത്തവർക്ക് സർവീസ് സഹകരണ ബാങ്കിൽനിന്നും താൽക്കാലിക വായ്പ ലഭ്യമാ ക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി പാലക്കാട് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവ്വ ഹിക്കുകയായിരുന്നു മന്ത്രി

തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ മരിച്ച മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിന്റെ കുടുംബത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി കെ

ബഷീറിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി ചെക്ക് കൈമാറിയ ത് ബഷീറിന്റെ രണ്ട് മക്കളുടെ പേരിൽ നാലുലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായും ബഷീറിന്റെ ഉമ്മയ്ക്ക് രണ്ടുലിക്ഷം രൂപയുമാണ് നൽകിയത് ബഷീറിന്റെ ഭാര്യയുടെ ജോലി സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിൽ തുടർ നടപടി സ്ഥീകരിച്ചുവരികയാ ണെന്ന് മന്ത്രി പറഞ്ഞു

കെയർഹോം പദ്ധതിയിൽ എറണാകുളം ജില്ലയിലെ പള്ളി യാക്കൽ സർവ്വീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ച നാല് വീടുക ളുടെ താക്കോൽദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

യാത്രക്കാ രുടെ ആവശ്യവും ഓണാഘോഷവും കണക്കിലെടുത്താണ് തീരുമാനം കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് നടത്തുന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നാളെ ആരംഭിക്കും മുഖ്യ വേദിയായ കോഴിക്കോട് ടാഗോർ ഹാളിൽ മന്ത്രി എ

ഫെഡറേഷന്റെ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ ഓണക്കിറ്റ് വിതരണവും കാഴ്ച പരിമിതർക്കായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ പരിശീലന ക്ലാസ്സും നാളെ അരൂരിൽ സംഘ ടിപ്പിക്കും ആകാശവാണി ശ്രോതാക്കളുടെ കൂട്ടായ്മയായ കാഞ്ചീ രവം കലാവേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി ഇന്ന് പ്രയ്യന്നൂരിൽ നടക്കും പൊന്നോണ പൂവിളി എന്നു പേരിൽ പയ്യന്നൂർ സിറ്റി സെന്റ റിൽ രാവിലെ ഗായകനും പ്രക്ഷേപകനുമായ പി